ആധാർ ഇല്ലെന്ന കാരണത്താൽ കുട്ടികൾക്ക് പ്രവേശനം നിഷേധിക്കരുതെന്ന് സ്കൂളുകളോട് ഗവൺമെന്റ്

മെൽബൺ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം

ഐ എസ് ഐ എസ് തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന സൂചനയെ തുടർന്നാണ് പരിശോധന ഇന്ന് രാവിലെ മുതലാണ് ഇവിടങ്ങളിൽ തെരച്ചിൽ ആരംഭിച്ചത്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

ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് പാലമായ ബോഗിബീൽ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ബോഗിബീൽ പാലത്തിലൂടെയുള്ള ആദ്യ പാസഞ്ചർ ട്രെയിൻ സർവീസിനും പ്രധാനമന്ത്രി പച്ചക്കൊടി കാട്ടി

നിയമമന്ത്രി രവിശങ്കർ പ്രസാദാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുക മുസ്ലീം സമുദായത്തിൽ നിലനിൽക്കുന്ന തലാഖ് നിയമ വിരുദ്ധമാക്കുന്നതാണ് ബിൽ

ഇത്തരം സ്ഥാപനങ്ങൾ മറ്റ് മതസ്ഥാപനങ്ങളിൽ നിന്നും സാമൂഹൃ സേവന പരിപാടികൾ മുഖേനയും സംഭാവന സ്വീകരിക്കാറുണ്ട് ഭൂരിഭാഗം ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൂർവ വിദ്യാർഥികളിൽ നിന്നും സംഭാവന ലഭിക്കാറുണ്ടെന്നും ധനകാരൃമന്ത്രി പറഞ്ഞു ചില ഐഐടികളും ഈ രീതി തുടങ്ങിയിട്ടുണ്ടെന്നും ശ്രീ ജെയ്റ്റ്ലി കൂട്ടിച്ചേർത്തു

മുൻ പ്രധാനമന്ത്രുയുടെ ജൻമ വാർഷിക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുക്യായിരുന്നു അദ്ദേഹം

താഴേതട്ടിലുള്ളവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനൊടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വികസനോൻമുഖമായ പദ്ധതികൾ നടപ്പിലാക്കാൻ അടൽജിയ്ക്ക് കഴിഞ്ഞതായും ഉപരാഷ്ട്രപതി പറഞ്ഞു

മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത് ഒരു വർഷം പൂർത്തിയായ വേളയിലായിരുന്നു പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിട്ടത്

സംസ്ഥാനത്തെ റോഡ് വിക്സ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ്ണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നത് ബലഗാവി വിമാനത്താവളത്തിന് റാണി ചെന്നമ്മയുടെ പേര് നൽകുന്നത് സംബന്ധിച്ചും കുടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും വ്യോമയാന വകുപ്പ് മന്ത്രി സുരേഷ് പ്രഭുവിനെയും കൽക്കരി മന്ത്രി പിയൂഷ് ഗോയലിനെയും എച്ച് ഡി കുമാരസ്വാമി സന്ദർശിക്കും

വിശദാംശങ്ങളുമായി വിനോദ്കുമാർ വോയിസ് സ്കൂൾ പ്രവേശനത്തിന് ആധാർ ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധവും സുപ്രീം കോടതിവിധിക്ക് എതിരാണെന്നും യുഐഡിഎഐ സിഇഒ അജയ് ഭൂഷൺ പാണ്ഡെ ന്യൂഡൽഹിയിൽ പറഞ്ഞു ചില സ്കൂളുകൾ പ്രവേശനത്തിന് ആധാർ ആവശ്യപ്പെടുന്നതായി വിവരം ലഭിച്ചതായി അദ്ദേഹം അറിയിച്ചു

പഞ്ചാബ് രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിൽ ശീതക്കാറ്റ് തുടരാനും മധ്യപ്രദേശ് കച്ച് എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട് ഈ മേഖലകളിലെ താപനില സാധാരണ നിലയിൽ നിന്ന് താഴ്ന്നു ഡൽഹിയിൽ രാവിലെ കൊടും തണുപ്പും മൂടൽമഞ്ഞും അനുഭവപ്പെട്ടു

ഉത്തർപ്രദേശിന്റെ പലഭാഗങ്ങളിലും ശൈതൃം തുടരുന്നു

ഒരു കുടുംബത്തിന് പ്രർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സയ്ക്ക് അടിസ്മാന് സൌകര്യങ്ങളൊരുക്കുന്ന പദ്ധതിയാണിത്

സിംഗ്റാവത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പദ്ധതി നടപ്പാക്കുന്നതോടെ എല്ലാവർക്കും സൌജനൃ ആരോഗൃ പരിരക്ഷ നൽകുന്ന ആദ്യ സംസ്ഥാനമായി മാറി ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ജീവനക്കാരെപ്പോലെ അക്രെഡിറ്റേഷനുളള മാധ്യമപ്രവർത്തകർക്കും ആരോഗ്യരക്ഷാ പദ്ധതി പ്രയോജനപ്പെടും

യൂസഫ് എ അൽ ഒത്തൈമീൻ പ്രസ്താവനയിൽ അറിയിച്ചു രാജ്യത്തെ ജനങ്ങൾക്കും ഗവൺമെന്റിനും ഒ ഐ സി ഐകൃദാർഢ്യം പ്രഖ്യാപിച്ചു

ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു

ടോസ് നേടിയ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യ നാല് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാമത്തെ മത്സരമാണ് മെൽബണിൽ ഇന്നാരംഭിച്ചത് പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്